പോലീസ് കമ്മീഷ്ടണ്ർ ർാജീവ്കുമാറിനെ സി ബി

ചർച്ചയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് മൂന്നംഗ ക്യാബിനറ്റ് കമ്മിറ്റി രൂപീകരിച്ചു

കൂടുതൽ വിവരങ്ങളുമായി അരുൺ

അസമിലെ ചംങ്സരിയിൽ പൊതുജനറാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അതിക്രമങ്ങൾ കാരണം അയൽരാജൃങ്ങളിൽ ന്യൂനപക്ഷങ്ങളായി കഴിയേണ്ടി വന്നവർക്ക് അഭയം നൽകാൻ തന്റെ ഗവൺമെന്റ് ബാദ്ധ്യസ്ഥമാണെന്ന് നിശ്ചിത പ്രധാനമന്ത്രി പറഞ്ഞു സമയത്തിനുള്ളിൽ തന്നെ അസം അക്കോർഡ് നടപ്പിലാക്കാൻ എൻ

എ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്

വടക്ക് കിഴക്കൻ മേഖലയിൽ പ്രകൃതിവാതക വിതരണ ഉറപ്പുവരുത്തുന്ന ഗ്യാസ് ഗ്രിഡിനും പ്രധാനമന്ത്രി തറക്കല്ലിടും നേരത്തെ അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപന കർമ്മവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു ആധുനിക ത്രിപുരയുടെ സ്ഥാപകനും അഗർത്തല സിറ്റിയുടെ ശില്പിയുമായി അറിയപ്പെടുന്ന മഹാരാജ ബിൽ ബിക്രം കിഷോർ മാണികൃ ബഹാദൂറിന്റെ പ്രതിമ ത്രിപുരയിലെ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൊൽക്കത്തയിലും യോഗങ്ങളിൽ ഫോട്ടോഗ്രാഫുകൾക്കായി പരസ്പരം കൈകോർക്കുന്നതുമാത്രമാണ് പ്രതിപക്ഷ നേതാക്കൾ ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വരുന്ന ലോക്സഭാ തെരെഞ്ഞെടുപ്പ് ഫലം ജനങ്ങളോട് കളവ് പറഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് തെളിയിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ബി

മേഘാലയയിൽ ഷില്ലോങിലെ സി ബി ഐ ഓഫീസിൽ ശാരദ ചിട്ടിഫണ്ട് അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യുന്നത്

ബി

അഭിഭാഷകനെയും ഉദ്യോഗസ്ഥരേയും ഓഫീസിൽ നിന്ന് മാറ്റിയശേഷമാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് വൃാഴാഴ്ചയാണ് രാജീവ്കുമാറിനോട് സി ബി ഐ മുമ്പാകെ ഹാജരാകാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത് എന്നാൽ രാജീവ്കുമാറിനെ അറസ്റ്റ് ചെയ്യരുതെന്നും നിർദ്ദേശം നൽകിയിരുന്നു

ഇലക്ട്രോണിക് രേഖകളിലടക്കം കൃത്രിമം കാട്ടിയെന്നാണ് സി ബി

കഴിഞ്ഞ മൂന്നിന് രാജീവ്കുമാറിനെ ചോദ്യം ചെയ്യാനായി കൊൽക്കത്തയിലെ ്രഅദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയ സി ബി ഐ സംഘത്തെ പ്സർസ്ഥാന ഗവൺമെന്റും പോലീസും തടഞ്ഞിരുന്നു

വടക്കു കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലേയ്ക്ക് സന്ദർശനത്തെക്കുറിച്ച് ചൈനീസ് വിദേശകാരൃ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലെന്നപോലെ സമയാസമയങ്ങളിൽ അരുണാചൽപ്രദേശിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു ഇത് ചൈനയെ യഥാസമയം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ദുരന്തത്തിലകപ്പെട്ട് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ നിരവധി പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിൽ കഴിയുന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി

ഗവൺമെന്റ് ജോലികളിൽ അഞ്ച് ശതമാനം സംവരണം ആവശ്യപ്പെട്ട് മുംബൈ ഡൽഹി റയിൽവെപാത പ്രക്ഷോഭകാരികൾ ഉപരോധിക്കുകയാണ് ഇതിനെ തുടർന്ന് പല ട്രെയിനുകളും വഴി തിരിച്ചുവിട്ടു

സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനടക്കം ഇടപെട്ടു

മേളയുടെ ഭാഗമായി നടക്കുന്ന മൂന്നാമത്തെയും അവസാനത്തെയും രാജകീയ സ്നാനം നാളെ നടക്കും അഗോരികളും സന്യാസി കളും രാജകീയ സ്നാനത്തിനായി ഗംഗ യമുന സരസ്വതി സംഗമ ഘട്ടത്തിൽ മുങ്ങിനിവരും

ആരോഗൃരംഗത്തെ ഗ്വേഷണോൻമുഖമായ പുരോഗതിയുടെ പ്രതീകമായി ഈ സ്ഥാപനം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇല്ലാതായ രോഗങ്ങൾ തിരിച്ചുവരികയും ചില ഘട്ടങ്ങളിൽ പകർച്ചവ്യാധികൾ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന സാഹചരൃത്തിലാണ് ഇത്തരമൊരു സ്ഥാപനം ആരംഭിച്ചതെന്ന് മുഖ്യമന്ത്രി വൃക്തമാക്കി വൈറോളജി രംഗത്തെ രോഗനിർണയത്തിനും ഗവേഷണത്തിനും സംസ്ഥാനത്തിന് മാത്രമല്ല അഖിലേന്ത്യാതലത്തിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുണകരമാകും

കൂടുതൽ വിവരങ്ങളുമായി അരുൺ

പൊതുതാല്പര്യ ഹർജികൾ മറ്റ് ജസ്റ്റ്രീധിപത്യ രാജ്യങ്ങളും അനുബന്ധ നിയമസംവിധാനങ്ങളും അംഗീകരിക്കുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു

നീതി കൂര്യിക്കലും പൂർണ്ണമോ സ്ഥിരമോ അല്ലെന്നും അതിന്റെ ന്നീർവ്ചനവും അതിലേയ്ക്കുള്ള മാർഗ്ഗവും മാനവചരിത്രത്തോടൊപ്പ് ഉരുത്തിരിഞ്ഞു വരുന്നതാണെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദേശീയ സുരക്ഷ ഏജൻസി രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ പ്രകാരമാണ് കേസ്

സംഭവുമായി ബന്ധപ്പെട്ട ഡൽഹി നിസാമുദീൻ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ യു എ ഇ രാജ്യങ്ങളിൽ നിന്നുള്ള ഹവാല ഇടപാടിലൂടെ പ്രതി പണം കൈപ്പറ്റിയതിനാണ് അറസ്റ്റ്

സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് പേരെക്കൂടി അറസ്റ്റ് ചെയ്തു

നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി ഇവിടങ്ങളിൽ തുടക്കം കുറിക്കും

കേന്ദ്ര റെയിൽവെ കൽക്കരി മന്ത്രി പിയൂഷ് ഗോയൽ ധനമന്ത്രാലയത്തിന്റെ ചുമതലയേറ്റ് ശ്രീ

അരുൺ ജെയ്റ്റ്ലി കഴിഞ്ഞവർഷം വൃക്ക മാറ്റിവെയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു

ചണ്ഡിഗറിലെ സ്നോ ആന്റ് അവലഞ്ച് സ്റ്റഡിയാണ് മുന്നറിയിപ്പ് നൽകിയത്

അനന്ദ്നാഗ് കുൽഗാം ബുഡ്ഗാം കാർഗിൽ ജില്ലകളിലും ഹിമപ്രവാഹത്തിന് സാധ്യതയുണ്ട്

കഴിഞ്ഞ ദിവസമുണ്ടായ ഹിമ പ്രവാഹത്തിൽ ഏഴ് പേർ മരിച്ചിരുന്നു

താലിബാൻ കമാൻഡോയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും ഗസ്നി പ്രവിശ്യയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്

ഈ മാസം മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലേ സന്ദർശിച്ചതിനു പിന്നാലെയാണ് ഇതു സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്